പി വി പാറ്റ് സംവിധാനവും തുടരുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ

വരികയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് പ്രിയാനമന്ത്രി നരേന്ദ്ര മോദി

വർഷത്തിൽ ര് ലക്ഷത്തി മുപ്പതിനായിരം പേർക്ക് തൊഴിൽ നൽകും

ബന്ധപ്പെട്ട കേസിൽ എൻഐഎ രാജ്യത്തെ എട്ട് കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തി

തിരഞ്ഞെടൂപ്പില്ലെ സമഗ്ര പങ്കാളിത്തം സംബന്ധിച്ച് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കുമ്മീഷ്ടന്റെ ആഭിമുഖ്യത്തിൽ ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പേപ്പർ ബാലറ്റ് സമ്പ്രദായത്തിലേക്ക് തിരിച്ച് പോകില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷിനുകളെ കുറിച്ച് ഉയർന്ന് വരുന്നു ആരോപണങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും ശീ അറോറ പറഞ്ഞു ബംഗ്ലാദേശ് ഭൂട്ടാൻ കസാക്കിസ്ഥാൻ മാലദ്വീപ് റഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് മേധാവികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു രാജ്യാന്തര സംഘടനകളിൽ നിന്നുള്ള പ്രതിനിധികളും സമ്മേളനത്തിൽ സംബന്ധിക്കുന്നുണ്ട് പൊതു തിരഞ്ഞെടുപ്പുകളിലെ അനുഭവങ്ങൾ പ്രതിനിധികൾ പങ്കുവയ്ക്കും ഒമ്പതാമത് ദേശീയ സമ്മതിദായക ദിനത്തോട് അനുബന്ധിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്

സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് വേഗത്തിൽ പരിഹാരം കാണാൻ കഴിയുന്ന തരത്തിൽ ജനകേന്ദ്രീകൃതവും സാങ്കേതികമായി മികവുറ്റതുമാകണം ഗവൺമെന്റ് സംവിധാനങ്ങൾ എന്നും പ്രധാനമന്ത്രി പറഞ്ഞു ബാരാമതി ഗദ്ചിരോലി ഹിങ്കോലി നാൻദദ് നാൻദർബാർ എന്നിവിടങ്ങളിലെ ബൂത്ത് പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി ഒരു കുടുംബത്തിന്റെയോ വ്യക്തിയുടെയോ താൽപര്യത്തിന് തീരുമാനം എടുക്കുന്ന പാർട്ടിയല്ല ബി ജെ

പ്രവർത്തകരുടെ താൽപര്യമനുസരിച്ചാണ് ബി ജെ

ജനാധിപത്യമൂല്യങ്ങൾ യഥാർത്ഥത്തിൽ പിന്തുടരുന്ന ഏകപാർട്ടി ബി ജെ

ഹത്രാസ് ജംഗ്ഷ്ടന് സമീപം കോട്ട പട്ന എക്സ്പ്രസ് തട്ടിയാണ് അപകടം മരിച്ച്വരിൽ മൂന്നുപേരെ തിരിച്ചറിഞ്ഞതായും ബന്ധുക്കളെ ഉടൻ വിവരം അറിയിക്കുമെന്നും പോലീസ് അറിയിച്ചു പരിക്കേറ്റ സ്ത്രീയെ ഹത്രാസിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

രജൌരിയിലെ സുന്ദർബനി സെക്ടറിലെ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാകിസ്ഥാൻ ആക്രമണം നടത്തുകയായിരുന്നു യാതൊരു പ്രകോപനവും കൂടാതെയാണ് പാക് സൈനൃം വെടിവെപ്പും ഷെല്ലാക്രമണവും നടത്തിയതെന്ന് സൈനിക വൃത്തങ്ങൾ അറിയിച്ചു ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചു ഇരു ഭാഗത്ത് നിന്നും വെടിവെപ്പ് തുടരുന്നതായാണ് ഒടുവിലത്തെ റിപ്പോർട്ട്

ബേഠി ബച്ചാവോ ബേഠി പഠാവോ പദ്ധതിയുടെ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ചു ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അവർ പദ്ധതി സ്മൂഹത്തിൽ പ്രകടമായ നിരവധി മാറ്റങ്ങൾ വരുത്തിയതായി ശ്രീമതി ഗാന്ധി പറഞ്ഞു ഹരിയാന പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പെൺകുഞ്ഞുങ്ങളുടെ അനുപാതം മെച്ചപ്പെട്ടതായും അവർ അറിയിച്ചു

നിലവിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും മാത്രമാണ് സംവരണം നൽകുന്നതെന്ന് അദ്ദേഹം ന്യൂഢൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അടുത്ത രണ്ട് വർഷത്തിനുളിളിൽ ്റെയിൽവേയിൽ രണ്ടുലക്ഷത്തിമുപ്പതിനായിര്ത്തോളം പേർക്ക് പുതുതായി തൊഴിൽ നൽകും രണ്ട് ഘട്ടങ്ങളിലായി തസ്തികകളിൽ നിയമനം നടത്താനാണ് തീരുമാന്റു

ഉദ്യോഗസ്ഥരുടെ വിരമിക്കലിനെ തുടർന്ന് ഉണ്ടാകുന്ന തസ്തികകളിൽ ആദ്യ ഘട്ടത്തിലെ നടപടികൾ പൂർത്തിയായതിനുശേഷം രണ്ടാംഘട്ടം നിയമന നടപടികൾ ആരംഭിക്കും

എ രാജ്യത്തെ എട്ട് കേന്ദ്രങ്ങളിൽ തിരച്ചിൽ നടത്തി ഫലാഹ് ഐ ഇൻസാനിയത്ത് ഫൌണ്ടേഷൻ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു പരിശോധന ഉത്തർപ്രദേശിലെ ഗോണ്ട രാജസ്ഥാനിലെ സികാർ ജയ്പൂർ ഡൽഹി ഗുജറാത്തിലെ വത്സാഡ് സൂററ്റ് കേരളത്തിലെ കാസർഗോഡ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം

കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നാല് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മറ്റുളളവർക്ക് വേണ്ടിയുളള തെരച്ചിൽ തുടരുകയാണ് പാകിസ്ഥാൻ ഭീകര സംഘടനയായ ജമാ അത്ത് ഉദ്ദവാ ബന്ധമുളളതും ഭീകര സംഘടനയായ ലഷ്കർ ഇ തൊയ്ബയുടെ മുന്നണി പോരാളി സംഘടനയാണ് എഫ്

ഇറാഖും സിറിയയും തമ്മിൽ അതിർത്തി പങ്കിടുന്ന മേഖലയിൽ ഐ

തീവ്രവാദികൾ ആക്രമണത്തിന് പദ്ധതിയിടുന്നതായുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് സൈന്യം ആക്രമണം നടത്തിയത്

യുടെ കല്ലാർ സാറ്റ് മൈക്രോ സാറ്റ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപിണ് ഇന്ന് നടക്കും

വിക്ഷേപണത്തിന്റെ കൌണ്ട് ഡൌൺ പുരോഗമിക്കുന്നു

വിദ്യാർത്ഥികൾ നിർമ്മിച്ചതാണ് ഉപഗ്രഹമെന്ന് ഐ എസ് ആർ ഒ ഡയറക്ടർ ഡോ

ഡി ഒ യുടെ ആവശ്യങ്ങൾക്കായിരിക്കും മൈക്രോസാറ്റ് പ്രവർത്തിക്കുകയെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി സോഫിയ വോയ്സ് വെനസ്വേലയിലെ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗുയെഡോവിനെ ഇടക്കാല പ്രസിഡന്റായി അമേരിക്കൻ പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപ് അംഗീകരിച്ചതോടെയാണ് പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത് ഈ മാസം ആദ്യമാണ് രണ്ടാം തവണ മഡുറോ പ്രസിഡന്റായി അധികാരമേറ്റത്

പ്രതിപക്ഷ പാർട്ടി നേതാവായ ജുവാൻ ഗുയെഡോ തനിക്ക് പതിനായിരകണക്കിന് ജനങ്ങളുടെ പിന്തുണയുണ്ടെന്നും അതിനാൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതായും സ്വയം പ്രഖ്യാപിക്കുകയായിരുന്നു

വെനസ്വേല സ്വതന്ത്രമാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ഗുയെഡോ അറിയിച്ചു വെനസ്വേലയിലുണ്ടായിരുന്ന രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടൻ പരിഹരിക്കണമെന്ന് ഐക്യരാഷ്ട്ര സഭ ആവശ്യപ്പെട്ടു പ്രശ്നം ഉടൻ പരിഹരിക്കണമെന്ന് യുറോപ്യൻ യൂണിയനും ആവശ്യപ്പെട്ടു

കയറ്റുമതി മേഖലയിൽ വരുത്തിയ മാറ്റങ്ങൾ അംഗീകരിക്കാൻ ചൈന തയ്യാറാകണമെന്നും പ്രസിഡന്റ് ഡോണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു അതേ സമയം യു എസ്

വിദർഭയുടെ ബൌളർ ഉമേഷ് യാദവിന്റെ ഏഴു വിക്കറ്റ് പ്രകടനമാണ് കേരളത്തെ തകർത്തത്

വൈകിട്ട് അഞ്ചു മണിക്കാണ് മത്സരം ഡിവിഷൻ ബി യിലെ പത്തു മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത് ചാമ്പ്യൻഷിപ്പിൽ ആതിഥേയരായ കേരളത്തിന്റെ തുടക്കം വിജയത്തോടെയായിരുന്നു

ഇന്നുല്ലു ന്യൂസിലന്റിനെതിരെ നടന്ന ആദ്യ മത്സരത്തിൽ ഇന്ത്യ എട്ടു വിക്കറ്റിന് വിജയിച്ചിരുന്നു രണ്ടാം മത്സരം ശനിയാഴ്ച നടിക്കും